ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കേന്ദ്ര ജീവനക്കാർക്ക് വിദേശത്തേക്ക് എൽ

സി

പ്രകൃതിയുമായി ഏറ്റുമുട്ടുന്ന രീതിയ്ക്കുപകരം അതിനെ പരിപോ ഷിപ്പിക്കുന്നവരും സ്നേഹിക്കുന്നവരുമാകാൻ സമൂഹം തയ്യാറാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു

ഇത് പ്രകൃതിയുടെ സന്തുലനാവസ്ഥയെ ഇല്ലാതാക്കുമെന്നും പ്രകൃതി ക്ഷോഭങ്ങൾക്ക് ഇടവരുത്തുമെന്നും മൻകി ബാത് പരിപാടിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു

ഇന്തോനേഷ്യയിൽ ഗുഹയിൽ കുടുങ്ങിയ കുട്ടികളെയും പരിശീലകനേയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് മഹത്തായ ലക്ഷ്യത്തോടെ ഒന്നിച്ച് പ്രവർത്തിക്കുകയാണ് ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു സമൂഹത്തിലെ ദുരാചാരങ്ങൾ ഇല്ലാതാക്കാൻ പരിശ്ര മിക്കണമെന്നും ഇതിനുപകരം സ്നേഹത്തെയും പരസ്പര വിശ്വാസ ത്തേയും ശുചിത്വത്തേയും പരിപോഷിപ്പിക്കണമെന്നും നരേന്ദ്രമോദി പറ ഞ്ഞു പരിസ്ഥിതി സൌഹൃദ ഉത്സവങ്ങളായിരിക്കണം നടത്തേണ്ടതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു വിദ്യാർത്ഥികളും യുവാക്കളും ജീവിതത്തിന്റെ പുതിയ ദിശ തെരഞ്ഞെടുക്കുന്നത് ശ്രദ്ധിച്ചായിരിക്കണം

പഠി ക്കുന്നതോടൊപ്പം തൊഴിലെടുക്കുന്നവർ മാതൃകകളാണെന്നും പ്രധാന മന്ത്രി പറഞ്ഞു ഇടുക്കി അണ്ക്കെട്ടിലെ ജലവിതാനം ഉയർന്ന സാഹചര്യത്തിൽ ഷട്ടർ തുറക്കേണ്ടി വന്നാൽ ചെയ്യേണ്ട ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യാൻ ഇടുക്കിയിൽ കലക്ടറുടെ സാന്നിധൃത്തിൽ അവലോകന യോഗം തുട ങ്ങി

എം മണി കെ

ബിയ്ക്ക് ഇന്നലെ നിർദ്ദേശം നൽകിയിരുന്നു ആലപ്പുഴയിൽ വെള്ളപ്പൊക്ക ദുരിതമനുഭവിക്കുന്നവർക്ക് സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ച ധനസഹായം നൽകിത്തുടങ്ങി ക്യാമ്പുകളിൽ രജിസ്റ്റർ ചെയ്ത അംഗങ്ങൾക്കാണ് ധനസഹായം

സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും അഞ്ചുകോടി രൂപ ജില്ലയ്ക്ക് മാത്രമായി അനുവദിച്ചിട്ടുണ്ട് കാലവർഷത്തിൽ വൻനാശമുണ്ടായ കുട്ടനാടിന് സമഗ്രമായ പാക്കേജ് വേണമെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു ദുരിതമനുഭവിക്കുന്ന കുട്ടനാട്ടിലെ ഉൾപ്രദേശങ്ങളിലുള്ളവർക്ക് സഹാ യങ്ങൾ എത്തുന്നില്ലെന്നും ദുരിതാശ്ചാസ ക്യാമ്പുകൾ സന്ദർശിച്ച അദ്ദേഹം പറഞ്ഞു ചമ്പക്കുളം കൈനകരി പ്രദേശങ്ങളിലാണ് ചെന്നിത്തല സന്ദർശനം നടത്തിയത്

ഈ സാഹചരൃത്തിൽ മറ്റ് ജില്ലകളിൽനിന്നടക്കം ആരോഗ്യപ്രവർത്തകരുടെ സേവനം ലഭ്യമാക്കണമെന്നും അദ്ദേഹം ആവ ശ്യപ്പെട്ടു ആലപ്പുഴ തണ്ണീർമുക്കം ബണ്ടിൽ ഇന്ന് ഗതാഗതം നിർത്തി വയ്ക്കും പുതുതായി നിർമ്മിച്ച മൂന്നാം ഘട്ടത്തിലൂടെ ഗതാഗതം തിരിച്ചുവിടുന്നതിന്റെ ഭാഗമായാണ് ഗതാഗത നിരോധനം

കോതമംഗലത്തും തൊടുപുഴയ്ക്കുസമീപവും ഉൾവനത്തിൽ ഇന്നു പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലിൽ നിരവധി വീടുകളിൽ വെള്ളംകയറി മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണെന്നാണ് റിപ്പോർട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് ലാവ്ലിൻ കേസ് വീണ്ടും കുത്തിപ്പൊക്കുന്നതെന്ന് സി

എം സംസ്ഥാന സെക്രട്ടറി കോടി യേരി ബാലകൃഷ്ണൻ പറഞ്ഞു

ബി ഐ യെ കൊണ്ട് കേസ് സുപ്രീം കോടതിയിൽ വരുത്തുന്നതിന് പിന്നിൽ ബിജെപിയും കോൺഗ്രസുമാണ് ഇതിനെ നിയമപരമായി നേരിടും ഹൈക്കോടതിയിലേത്പോലെ സുപ്രീം കോടതിയിലും ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ നിരപരാധിയാ ണെന്ന് തെളിയുമെന്ന് കോടിയേരി കോഴിക്കോട്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഉന്നത് ഭാരത് അഭിയാൻ പദ്ധതിയുടെ ദക്ഷിണ മേഖല ശിൽപശാല നാളെ മണ്ണൂത്തി കേരള കാർഷിക സർവ്വകലാശാലയിൽ നടക്കും കേര ളവും ലക്ഷദ്വീപുമടങ്ങുന്ന മേഖലയിൽ പദ്ധതി നടപ്പാക്കുന്നതിന് മാർഗ്ഗ രേഖ തയ്യാറാക്കുകയാണ് ശിൽപശാലയുടെ ഉദ്ദേശ്യം

ഇവിടങ്ങ ളിൽ കൃഷി ശുചിത്വം മാലിന്യ നിർമ്മാർജ്ജനം പ്രകൃതി വിഭവ സംര ക്ഷണം എന്നീ രംഗങ്ങളിൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കും തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂർ നടത്തറ മറ്റത്തൂർ എസ് എൻ പുരം വെങ്കിടങ്ങ് പഞ്ചായത്തുകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർക്ക് വിദേശത്തേക്ക് വൈകാതെ എൽ

നേരത്തെ സാർക്ക് രാജ്യങ്ങളിലേക്ക് എൽടിസി ആനുകൂല്യം നൽകാൻ തീരുമാനിച്ചിരുന്നെങ്കിലും പിന്നീട് അത് പിൻവലിച്ചു ഇപ്പോൾ കസാക്കിസ്ഥാനും ്തുർക്ക് മെനിസ്ഥാനും ഉൾപ്പെടെ അഞ്ച് മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കാണ് എൽടിസി ആനുകൂലൃം നൽകാൻ ഉദ്ദേശിക്കുന്നത് ഗ്രാമങ്ങളിൽ ജോലി ചെയ്യാൻ ലഭിക്കുന്ന അവസരം ഡോക്ടർമാർ പാഴാക്കരുതെന്ന് ഗവർണർ ജസ്റ്റിസ് പി സദാശിവം പറഞ്ഞു രോഗികളുടെ വിശ്വാസമാണ് ആദ്യം നേടേണ്ടതെന്നും ഇന്ത്യൻ മെഡിക്കൽ കൌൺസി ലിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചായിരിക്കണം ഡോക്ടർമാരുടെ പ്രവർത്തനമെന്നും അദ്ദേഹം എറണാകുളത്ത് പറഞ്ഞു

മരണസംഖ്യ ഉയർന്നേക്കുമെന്ന് ഔദ്യോഗിക അറിയിപ്പിൽ സൂചനയുണ്ട്

തുടർ വർഷങ്ങളിലെ കണക്കുകൾ ലഭ്യമായിട്ടില്ല ചെന്നൈയിൽ ചികിത്സയിൽ കഴിയുന്ന ഡി

നേതാവ് എം

അദ്ദേഹ ത്തിന്റെ രക്തസമ്മർദ്ദം സാധാരണ നിലയിലെത്തിയെങ്കിലും ആന്തരികാ യവങ്ങളുടെ പ്രവർത്തനം പൂർണ്ണമായും തൃപ്തികരമല്ലെന്നാണ് വിലയി രുത്തൽ കാവേരി ആശുപത്രി പരിസരങ്ങളിൽ പൊലീസ് കർശന നിയ ന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആയിരക്കണക്കിനാളുകൾ ആശുപ ത്രിയ്ക്ക് സമീപം തടിച്ചുകൂടിയിട്ടുണ്ട് വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് അമേരിക്കയെ നേരിടും

നിർണ്ണായക മത്സര ത്തിൽ ജയമോ സമനിലയോ നേടിയാൽ ബി ഗ്രൂപ്പിൽനിന്ന് ഇന്ത്യയ്ക്ക് പ്പേ ഓഫ് റൌണ്ടിലേക്ക് കടക്കാം

ചാമ്പ്യൻഷിപ്പ് ഇന്ന് വൈകീട്ട് സമാപിക്കും സമാപന സമ്മേളനം മന്ത്രി കെ

ഇന്നലെ രാവിലെ ചമ്രവട്ടം പാലത്തിന് സമീപം പട്രോൾ സംഘ ത്തെകണ്ട് ഇയാളും സുഹൃത്തും പുഴയിലേക്ക് ചാടുകയായിരുന്നു സുഹൃത്ത് നീന്തി രക്ഷപ്പെട്ടു

ആരോപണ വിധേയനായ ബിഷപ്പിന്റെ മൊഴി എടുക്കുന്നതിനായി പൊലീസ് സംഘം അടുത്ത ആഴ്ച ജലന്ധറിലേക്ക് പോകും കേരള ത്തിൽ അന്വേഷണം പൂർത്തിയായതായി കോട്ടയം എസ്

സാക്ഷികളായ സ്ത്രീകളുടെ മൊഴിയെടുക്കാൻ വൈകുന്നത് സ്വാഭാവികമാണെന്നും പുതിയ നിയമം അനുസരിച്ച് സ്ത്രീകളുടെ സൌകര്യവും സമയവും നോക്കി മാത്രമേ മൊഴി രേഖപ്പെടുത്താനാവൂ എന്നും അദ്ദേഹം പറഞ്ഞു നോട്ടീസയച്ച് വിളിച്ചുവരുത്തുന്നതിന് നിയമ പ്രശ്നങ്ങൾ ഉണ്ടെന്നും ഹരിശങ്കർ വ്യക്തമാക്കി സിനിമാതാരങ്ങൾ പരസ്യപ്രസ്താവന നടത്തുന്നതിനെതിരെ താരസം ഘടന അമ്മ സർക്കുലർ പുറത്തിറക്കി മാധ്യമങ്ങളിലൂടെ അനാവശ്യപ്ര സ്താവനകൾ നടത്തി സംഘടനയെ അപഹാസ്യ രാക്കരു തെന്ന് സർക്കുലറിൽ പറയുന്നു

സംഘടനയ്ക്കുള്ളിൽ പറയേണ്ട പരാതി പൊതുവേദിയിലോ മാധ്യമങ്ങളിലൂടെയോ പറയുന്നത് സംഘടനയ്ക്കും അംഗങ്ങൾക്കും ദോഷമാണ് ചെയ്യുന്നതെന്നും സർക്കുലർ വൃക്തമാക്കുന്നു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പോകുന്നവരുടെ യാത്രാ ഷെഡ്യൂളായി നെടുമ്പാശ്ശേരിയിൽനിന്ന് അടുത്തമാസം ഒന്ന് മുതൽ എട്ട്വരെ പോകുന്നവരുടെ യാത്രാ വിവരങ്ങളാണ് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി സംസ്ഥാന ഹജ്ജ് കമ്മറ്റിയ്ക്ക് നൽകിയത്

കണിയാപുരം ഗോൾഡ് സൂക്ക് ഉടമ ഇബ്രാഹിം അഷ്റഫിനെ കസ്റ്റഡിയിലെടുത്തു പ്രമുഖ നാടകനടി കണ്ണൂർ ചെറുകുന്നിലെ തങ്കം ഹരിദാസ് നിര്യാത യായി ഒട്ടേറെ നാടകങ്ങളിൽ അഭിനയിച്ച അവർ ആകാശവാണി നാടക കലാകാരി കൂടിയാണ്